അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു

രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു

യിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതായി ധനമന്ത്രാലയം ഭവന നിർമ്മാണ മേഖലയിലും വലിയ ഇളവുകളാണ് ചരക്കുസേവന നികുതിയിൻ കീഴിൽ ലഭ്യമാക്കിയിരിക്കുന്നത്

എസ്

പ്രാബലൃത്തിൽ വന്നതിനു ശേഷം നികുതിദായകരുള്ളൂ എണ്ണം ഇരട്ടി ആയതായും മന്ത്രാലയം ട്വിറ്ററിലൂടെ അറിയിച്ചു

ഫിറ്റ്നസ് പെർമിറ്റ് ലൈസൻസ് രജിസ്ട്രേഷൻ മറ്റ് അനുബന്ധ രേഖകൾ എന്നിവയുടെ കാലാവധിയാണ് കേന്ദ്ര റോഡ് ഉപരിതല ഗതാഗത മന്ത്രാലയം ദീർഘിപ്പിച്ചത്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

ഉദ്ധ്യോഗ്സ്ഥർ രാജ്യരക്ഷാ മന്ത്രിക്ക് കൈമാറി

ദേശീയ ദുരന്ത നിവാരണ സേനാ മേധാവിയുമായി സംസാരിച്ചതായും രക്ഷാപ്രവർത്തനങ്ങൾ ഊർജ്ജിതപ്പെടുത്തുമെന്നും ആഭ്യന്തരമന്ത്രി അറിയിച്ചു ദുരന്തത്തിൽപ്പെട്ട എല്ലാവരുടെയും സുരക്ഷയ്ക്കായി പ്രാർത്ഥിച്ചതായും അമിത് ഷാ ട്വിറ്ററിലൂടെ അറിയിച്ചു

തമിഴ്നാട് ആരോഗ്യ സർവകലാശാലയും ആയുഷ് വകുപ്പും സംയുക്തമായി വൈദ്യശാസ്ത്ര മേഖലയിലെ ഗവേഷണത്തിനായി കരാർ ഒപ്പുവച്ചു

വ്യാഴാഴ്ച പരിശോധനയിൽ കോവിഡ് ബാധയില്ലെന്ന് കണ്ടതിനെ തുടർന്ന് കഴിഞ്ഞ മൂന്നു ദിവസങ്ങളായി അദ്ദേഹം സ്വയം നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു കേന്ദ്രമന്ത്രി ഗജേന്ദർ സിംഗ് ശെഖാവത്തിന് കോവിഡ് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് മനോഹർ ലാൽ പരിശോധനയ്ക്ക് വിധേയനായത് അദ്ദേഹവുമായി സമ്പർക്കത്തിൽ വന്നവരെല്ലാം കോവിഡ് പരിശോധനയ്ക്ക് വിധേയരായി നീരീക്ഷണത്തിൽ പോകണമെന്ന് മന്ത്രി ട്വിറ്ററിലൂടെ അറിയിച്ചു ഹരിയാന നിയമസഭാംഗം ഗ്യാൻചന്ദ് ഗുപ്തയ്ക്കും രണ്ട് ബി ജെ

എംഎൽഎ മാർക്കും ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചു ഹരിയാന നിയമസഭയുടെ വർഷകാല സമ്മേളനം രണ്ട് ദിവസത്തിനുള്ളിൽ ഛണ്ഡിഗഡിൽ ആരംഭിക്കാനാരിക്കെയാണ് സഭാംഗങ്ങൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്

റോഡ് മാർഗവും പ്രത്യേക ട്രെയിൻ സർവീസ് വഴിയുമാണ് ഇവർ തിരിച്ചെത്തിയത്

സ്റ്റേഷന്റെ തെക്കേ അറ്റത്ത് കാൽനട യാത്രക്കാർക്കുള്ള സ്ഥലസൌകരൃം വർദ്ധിപ്പിക്കുന്നതിനായി നിലവിലെ ചില ഓഫീസ് കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റും

ഡൽഹിയിൽ ആസ്ഥാനമായ വായുഭവനിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ രാകേഷ് സിംഗ് ബദൌരിയ മൈബൈൽ ആപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വ്യോമസേനയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് സേനയുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ്ല നടപടികൾ പരിശീലനം സേവന വേതന വ്യവസ്ഥകൾ എന്നിറ്റ്ട്രിയ്പ്പറ്റിയെല്ലാം ആപ്പിലൂടെ വിശദമായി അറിയാനാകും

വി ഡി സതീശൻ എംഎൽഎയാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്

വോയ്സ് എട്ട് മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ പ്രതിപക്ഷം ഉന്നയിച്ച ഓരോ ആരോപണത്തിനും ഭരണപക്ഷ അംഗങ്ങൾ മറുപടി പറഞ്ഞു

സ്വർണക്കടത്ത് ലൈഫ് മിഷൻ തുടങ്ങിയ പ്രധാന ആരോപണങ്ങളിൽ മറുപടി പറയാൻ തുടങ്ങവെ പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തി മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു

അവിശ്വാസ പ്രമേയത്തിന് പിന്നിൽ കമ്യൂണിസ്റ്റ് വിരുദ്ധ കരുനീക്കമാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു ഓരോ മേഖലയിലെയും സുപ്രധാന നേട്ടങ്ങൾ വിവരിച്ച മുഖ്യമന്ത്രി ജനങ്ങൾക്ക് ഈ സർക്കാരിലുള്ള വിശ്വാസം വർധിപ്പിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു അതേസമയം പ്രതിപക്ഷം ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾക്കൊന്നും അവിശാസ പ്രമേയ ചർച്ചയിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമ്നേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി

സംസ്ഥാന നിയമസഭയുടെ ചരിത്രിത്തിലെ പതിനാറാമത്തെ അവിശ്വാസ പ്രമേയമാണ് സഭ ഇന്നലെ ചർച്ച് ചെയ്തത്

ആകാശവാണി

ഡി എഫിലെ ലാൽ വർഗീസ് കൽപ്പകവാടിയെ

ഒരു വോട്ട് അസാധുവായി കേരള കോൺഗ്രസ് ജോസ് പക്ഷത്തെ രണ്ട് അംഗങ്ങളും ബി ജെ പി അംഗം ഒ

അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും എം പി വീരേന്ദ്രകുമാറിന്റെ നിര്യാണത്തെ തുടർന്നാണ് അദേഹത്തിന്റെ മകനും ലോക് താന്ത്രിക് ജനതാദൾ സംസ്ഥാന അധ്യക്ഷനുമായ ശ്രേയാംസ് കുമാർ തിരഞ്ഞെടുക്കപ്പെട്ടത്

പിഎ്എം കെയേഴ്സ് ഫണ്ട് ഉപയോഗിച്ച് ഡി ആർ ഡി ഒ യുടെ സ്ഹക്രണത്തോടെയാണ് ആധുനിക സൌകര്യങ്ങളോടു കൂടിയ ആശുപ്ത്രി നിർമിച്ചത്